വികസനമാണ് രാജൃം ലക്ഷമിടുന്നതെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി

എസ് എൽ

ബംഗ്ളൂരുവിനെ നേരിടും

കൊച്ചി ബി

എല്ലിന്റെ പ്രൊപ്പലിൻ ഡെറിവേറ്റീവ് പെട്രോ കെമിക്കൽ കോംപ്പക്സ് ഉൾപ്പെടെയുള്ള പദ്ധതികൾ പ്രധാനമന്ത്രി നാടിന് സമർപ്പിച്ചു പ്രൊപ്പലിൻ ഡെറിവേറ്റീവ് പെട്രോ കെമിക്കൽ പദ്ധതി ഉത്പാദന ക്ഷമമാകുന്നതോടെ ഇറക്കുമതിയ്ക്കായി പ്രപ്പിതിവർഷം ചെലവിടുന്ന നാലായിരം കോടിയോളം രൂപ ലാഭീയ്ക്കാനാവുമെന്ന് ശ്രീ

സ്വയം പര്യാപ്ത് ഭാരതം കെട്ടിപ്പടുക്കാൻ ഒരുമിച്ച് പ്രവർത്തിക്കാമെന്ന് അദ്ദേഹം സ്ംസ്ഫാന സർക്കാരിന് ഉറപ്പ് നൽകി കൊച്ചി മെട്രോയ്ക്ക് ഉൾപ്പെടെ കേന്ദ്രം തുക വകയിരുത്തിയിട്ടുണ്ടെന്നൂറ്ട് സ്പ്ര്യാനമന്ത്രി ചൂണ്ടിക്കാട്ടി

നിലവിൽ ഒരു മത്സ്യത്തൊഴിലാളി പോലും ശ്രീലങ്കയിൽ തടവിലില്ലെന്നും പ്രധാനമന്ത്രി പറഞ്ഞു

കൂടുതൽ രക്തസാമ്പിളുകൾ പരിശോധിക്കാനും സംഘം ചൈനീസ് ഗവൺമെന്റിനോട് അനുമതി തേടി

ഫാസ് ടാഗ് മുദ്ര ഇല്ലാത്ത വാഹനങ്ങൾ ടോൾ ബൂത്തിലൂടെ കടന്നു പോകണമെങ്കിൽ ഇനി ഇരട്ടി നിരക്ക് നൽകേണ്ടി വരും

മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് ചടങ്ങിൽ സംബന്ധിക്കും

അപകടത്തിൽ പരിക്കേറ്റവർ എത്രയും പ്ടെട്ടെന്ന് ് സുഖം പ്രാപിക്കട്ടെ എന്നും അദ്ദേഹം ട്വിറ്ററിൽ ക്യൂറിച്ചു

ജയശങ്കറും ഇന്ത്യയിലെ ജപ്പാൻ അംബാസിഡർ സതോഷി സുസുകിയും ഗുവാഹത്തിയിലെ ഖർഘൂലി ജലവിതരണ പദ്ധതി സന്ദർശിച്ചു ഉദ്യോഗസ്ഥരുമായി ഇരുവരും ചർച്ച നടത്തി ഗുവാഹത്തിയിൽ ശുദ്ധജല വിതരണത്തിനായി ജപ്പാൻ സഹായത്തോടെ ആരംഭിച്ച പദ്ധതിയാണ് ഖർഘൂലി

കോവിഡ് മാനദണ്ഡങ്ങൾ കർശനമായി പാലിച്ചായിരിക്കും തെരഞ്ഞെടുപ്പെന്നും സർക്കാരും വിവിധ പാർട്ടികളുമായി നടത്തിയ കൂടിക്കാഴ്ചയ്ക്കൊടുവിൽ അദ്ദേഹം വ്യക്തമാക്കി

ഏപ്രിലിൽ തിരഞ്ഞെടുപ്പ് വേണമെന്നാണ് യുഡിഎഫിന്റെയും ആവശ്യം തെരഞ്ഞെടുപ്പ് മേയിൽ മതിയെന്ന് ബിജെപിയും ആവശ്യപ്പെട്ടു

ആദൃ മേഖലാ പ്രദർശനം തിരുവനന്തപുരത്ത് ഇന്ന്ലെ സമാപിച്ചു

തപോവൻ തുരങ്കത്തിൽ കുടുങ്ങിയവരെ കണ്ടെത്താനുള്ള പ്രവർത്തനങ്ങൾ ഇന്നലെ രാത്രിയും തുടർന്നു

മാവുവും ആനന്ദ് വിഹാറും ട്രെയിൻ മാർഗ്ഗും ബന്ധിപ്പിക്കുന്നതിലൂടെ പൂർവാഞ്ചലിലെ ജനങ്ങളുടെ ദീർഘകാല ആവശ്യമാണ് സഫലമാകുന്നതെന്ന് കേന്ദ്രമന്ത്രി വൃക്തമാക്കി

സ്വർണവിലയിൽ മാറ്റമില്ല

ഇന്നലെ നടന്ന മത്സരത്തിൽ എ ടി കെ മോഹൻ ബഗാൻ എതിരില്ലാത്ത ഒരു ഗോളിന് ജംഷഡ്പൂർ എഫ്

കെ മോഹൻ ബഗാൻ ഒന്നാം സ്ഥാനത്തും